പദ്ധതിയ്ക്ക് കേരളത്തിൽ ചൊവ്വാഴ്ച തുടക്കം

സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിന്റെ ഗ്രാൻഡ് ഫിനാലെയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി

ഈ നൂറ്റാണ്ട് അറിവിന്റെ കാലമാണ് പഠനം ഗവേഷണം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയം

രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരമുയർത്തി വിദ്യാഭ്യാസ സമ്പ്രദായം നൂതനവും ആധുനികവുമാക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേവലം മനപാഠമാക്കുന്നതിൽ നിന്നും വിർശനാത്മകമായ ചിന്തയിലേയ്ക്ക് നയിക്കുന്നതാണ് രാജൃത്തിന്റെ പുതിയ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ നയത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ഇന്ത്യയിലെ ഭാഷകളുടെ വികാസത്തിനു വഴിയൊരുക്കുമെന്നും ഇത് അറിവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല രാജ്യത്തിന്റെ ഐക്യം വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

എം ഇ വിദ്യ വഴിയുള്ള ഓൺലൈൻ ക്ലാസുകൾ രാജ്യത്ത് ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നൂതനാശയങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്

കോളേജ് തലത്തിലുള്ള മൾട്ടിപ്പ്പ്പ് എക്സിറ്റ് സ്കീമുകൾ യുവാക്കൾക്ക് ഏറെ പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു

ഇതു സംബന്ധിച്ച നടപടി സ്വീകരിക്കാൻ വിദേശ വാണിജൃ ഡയറക്ടർ ജനറലിന് നിർദ്ദേശം നൽകി രാജ്യത്ത് കോവിഡ് മരണനിരക്ക് തുടർച്ചയായി കുറയുന്നതും വെന്റിലേറ്ററുകളുടെ തദ്ദേശീയ ഉത്പാദനത്തിലെ പുരോഗതിയും മുൻനിർത്തിയാണ് തീരുമാനം ആഗോള രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യൻ വെന്റിലേറ്ററുകൾക്ക് പുതിയ വിപണി കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്

സ്വകാര്യ ആശുപത്രികളുടെ ചികിത്സാനിരക്ക് സംബന്ധിച്ച് ഗവൺമെന്റ് നേരത്തെന്നെ തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി ഡോ

ആറു് ്മാസത്തെ കോവിഡ് പ്രതിസന്ധി വിലയിരുത്താൻ ചേർന്ന അടിിയന്തര യോഗത്തിനുശേഷമാണ് സംഘടനയുടെ പ്രസ്താവന്ത്ര്യ ഈ ഘട്ടത്തിൽ രാജ്യങ്ങളുടെ മേൽ സാമൂഹിക സാമ്പത്തിക്ട് സമ്മർദ്ദമുണ്ടായാൽ സ്ഥിതി കൂടുതൽ ഗുരുതരമാകുമെന്നും പ്ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നു

മന്ത്രി എ സി മൊയ്തീൻ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും

മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിനിയോഗിച്ച് സംസ്ഥാനത്ത് ആദ്യമായി തദ്ദേശ റോഡുകൾക്കായി ആവിഷ്കരിക്കുന്ന പ്രത്യേക പദ്ധതിയാണിത്

മഴക്കാല രോഗങ്ങളിൽ പ്രധാനമായ വൈറൽ പനി ജലദോഷ രോഗങ്ങൾ തുടങ്ങിയവയുടെ ലക്ഷണങ്ങൾ പലതും കോവിഡ് ലക്ഷണങ്ങൾക്ക് സമാനമാണ് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ താമസിക്കുന്നവർക്ക് ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ആരോഗൃപ്രവർത്തകരെ അറിയിക്കണമെന്നും ആരോഗൃവകുപ്പ് നിർദ്ദേശിച്ചു

ഇന്ത്യൻ കൌൺസിൽ ഫ്മോർ കൾച്ചറൽ റിലേഷൻസ് സംഘടിപ്പിച്ച ലോകമാന്യതിലക് സ്വരാജ് ൽ നിന്നും സ്വാശ്രയ ഇന്ത്യയിലേയ്ക്ക് എന്ന ദിദിന വെബിനാർ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബാലഗംഗാധർ തിലകിന്റെ ചരമവാർഷിക നൂറാം ദിനാചരണത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്

ഗ്രാമീണ നഗര പ്രദേശങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് മിഷൻ പ്രവർത്തനങ്ങൾ

ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ രാജ്യത്തിന് ഏറെ മുന്നോട്ടുപോകാനും ഖര ദ്രാവക മാലിന്യ സംസ്കരണത്തിന് സൌകര്യങ്ങളേർപ്പെടൂത്താനും കഴിഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശ്വാണി

മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഢിലെയും കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളെ പങ്കെടുപ്പിച്ച് നടത്തിയ ത്രിദിന ശിൽപശാലയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ

ഏതു പ്രതിസന്ധിയിൽ നിന്നും രാജ്യത്തെ ഉയർത്താനുള്ള കൃഷി ഗ്രാമീണ മേഖലകളുടെ ശേഷിയെ അദ്ദേഹം പ്രകീർത്തിച്ചു

ബി യുടെ അറിയിപ്പിൽ പറയുന്നു

പരിശീലനം ആരംഭിക്കാൻ കർണാടക സർക്കാരിൽ നിന്നും ഔപചാരിക അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്

നേപ്പാൾ ശ്രീലങ്ക പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളും പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയ പട്ടികയിൽ ഉൾപ്പെടുന്നു

സുരേഷ് ബാബു വിരമിച്ചതിനെ തുടർന്നുള്ള ഒഴിവിലാണ് നിയമനം